ഗോൾ കീപ്പർ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങി സ്വച്ഛ് ഭാരത് ദൌത്യം നടപ്പാക്കിയതിനാണ് പുരസ്കാരം

സ്ഥാനാർത്ഥി നിർണ്ണയ പ്പർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്

ഊർജിത ശ്രമങ്ങളുമായി ഗവൺമെന്റ് ഫ്ളാറ്റുകളിലേയ്ക്കുള്ള കുടിവെള്ള വൈദ്യുതി വിതരണം നിർത്തിവയ്ക്കും

മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയും ഇന്ന് ചർച്ച നടത്തും

പിറവം പള്ളിയിൽ സംഘർഷം

സ്വച്ച് ഭാരത് ദൌതൃം നടപ്പാക്കിയതാണ് പ്രധാനമന്ത്രിയ്ക്ക് ഈ പുരസ്കാരം നേടിക്കൊടുത്തത് സച്ച് ഭാരത് ദൌത്യത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റുകയും ശുചിത്വത്തിന് നിതൃ ജീവിതത്തിൽ അതീവ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഇന്ത്യൻ ജനതയ്ക്ക് പുരസ്കാരം സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കുവച്ചു ഇന്ത്യയിൽ ജനിച്ചെങ്കിലും ഗാന്ധിജി ഇന്ത്യയ്ക്ക് മാത്രം അവകാശപ്പെട്ട വ്യക്തിയല്ലെന്നും അദ്ദേഹത്തിന്റെ ജീവിതം നിരവധി പേരെ സ്വാധീനിച്ചതായും ശ്രീ നരേന്ദ്ര മോദി പറഞ്ഞു ഉപതിരഞ്ഞെടുപ്പ് ഇൻഡ്രോ സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുന്നണി സജീവമാക്കി

സ്ഥാനാർത്ഥി ചർച്ചക്കായി സി

തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കാസർകോട് ജില്ലാ സെക്രട്ടറിയറ്റാണ് ചേരുന്നത്

കോൺഗ്രസ് തിരഞ്ഞെടുപ്പു സമിതിയും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും

എ കോർ കമ്മിറ്റി പരിഗണിച്ച പേരുകൾ ്കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും ന്യൂസ് ഡെസ്ക് ആകാശവാണ്

വോട്ടു രേഖപ്പെടുത്തിയ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന പാലാ കാർമ്മൽ സ്കൂളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം

വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും മന്ത്രിസഭായോഗം സ്വകാര്യ ലാബിലെ തെറ്റായ പരിശോധനാ റിപ്പോർട്ടിനെ തുടർന്ന് കോട്ടയം ഗവ മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പിക്ക് വിധേയയാകേണ്ടി വന്ന മാവേലിക്കര സ്വദേശി രജനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മൂന്നു ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കീമോതെറാപ്പി കാരണമുണ്ടായ ചികിത്സാ ചെലവും ശാരീരിക അവശതകളും മാനസികാഘാതവും പരിഗണിച്ചാണ് ധനസഹായം അനുവദിക്കുന്നത്

ഇതിനായി ഗവൺമെന്റ് നിയോഗിച്ച പ്രത്യേക ഉദ്യോഗ്ന്ഥിൻ ഫോർട്ട് കൊച്ചി സബ് കലക്ടർ സ്നേഹിൽ കുമാർ സിങ്ട് മരട് നഗരസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റു

സൂപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ചയോടെ നടപടിക്രമങ്ങൾക്കു തുടക്കമിടാനാണ് ഗവൺമെന്റ് നീക്കം ഫ്ളാറ്റിലേക്കുള്ള കുടിവെള്ള വൈദ്യുതി കണക്ഷനുകൾ വിച്ചേദിക്കാൻ മരട് നഗരസഭ സെക്രട്ടറി കെ എസ്

ബി യോടും വാട്ടർ അതോറിട്ടിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്

വൈദ്യുതിയും വെള്ളവും നിഷേധിക്കുന്നതിനെതിരെ റാന്തൽ തെളിയിച്ച് പ്രതിഷേധിക്കുമെന്ന് താമസക്കാർ അറിയിച്ചു മുഖ്യമന്ത്രി ചർച്ച അന്തർ സംസ്ഥാന നദീജലകരാർ സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ

തിരുവനന്തപുരത്ത് വൈകിട്ട് മൂന്നിനാണ് ചർച്ചു പറമ്പിക്കുളം ആളിയാർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല കരാറുകളെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും

കൃഷ്ണൻകുട്ടി എം

മണി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും

പള്ളിക്കകത്ത് പ്രവേശിക്കാനെത്തിയ ഓർത്തുഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം ഗേറ്റിനു മുന്നിൽ തട്ടുത്താണ് സംഘർഷത്തിന് കാരണമായത് ഓർത്തഡോക്സ് വിഭാഗ്ത്തിന് പള്ളി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം എന്നാൽ കോടതി വിധി നടപ്പാക്കിയതിനുശേഷം മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം തടസ്സപ്പെടുത്തരുതെന്ന് പോലീസ് ഇരു വിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടു

ബാക്കിയുള്ളവ ഒക്ടോബർ അവസാനത്തോടെ നിരത്തിലിറങ്ങും പാലാരിവട്ടം പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ് റിമ്മാൻഡിൽ കഴിയുന്ന മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി

ഇന്ന് രാവിലെ ജയിലിലെത്തിയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി വിജിലൻസ് ചോദ്യം ബ്ലിയ്യ്നാരംഭിച്ചത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം സൂരജിനെ ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയിരുന്നു

തൃശൂർ എറണാകുളം ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് രൂപം കൊണ്ട ഹിക്ക ചുഴലിക്കാറ്റിന്റെ ഭാഗമായാണ് കേരളത്തിലും മഴ ലഭിക്കുന്നത് ചുഴലിക്കാറ്റ് ഒമാൻ തീരത്തേക്ക് നീങ്ങി ജാഗ്രതാ മുന്നറിയിപ്പിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അറബിക്കടലിൽ മീൻപിടിക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

യുവജന സംഘടന നേതാക്കളുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ നിരാഹാര സമരം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി വയനാടു നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസന്റ്

എം

എസ് വൈ ് റോഡുകൾ അനുമതിയില്ലാതെ വെട്ടിപ്പൊളിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കാനും റോഡുകൾ പൂർവസ്ഥിതിയിലാക്കാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ യോഗം ചുമതലപ്പെടുത്തി

ഉഷ അത്ലറ്റിക്സിന് നൽകിയ സംഭാവനകൾ മാനിച്ച് അത്ലറ്റിക് ഫെഡറേഷനുകളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ നൽകുന്ന വെറ്ററൻ പിൻ പുരസ്കാരം ഒളിമ്പ്യൻ പി

ദോഹയിൽ നടന്ന ചടങ്ങിൽ ഫെഡറേഷൻ കോൺഗ്രസിൽ വെച്ച് ഐ

അധ്യക്ഷൻ സെബാസ്റ്റ്യൻ കോയിൽ നിന്നാണ് ഉഷ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇന്ത്യയിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വനിതാ അത്ലറ്റാണ് പി ടി

നവരാത്രി പൂജ തിരുവനന്തപുരം കോട്ടയ്ക്കകത്തു നടക്കുന്ന നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്ത് നാളെ ആരംഭിക്കും

കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഹെലികോപ്റ്റർ മാർഗമോ റോഡ് വഴിയോ ആയിരിക്കും രാഷ്ട്രപതി നാവിക അക്കാദമിയിലേക്ക് പോകുക തയ്യാറെടുപ്പുകൾക്കായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു

ഹർമൻ പ്രീത് കൌറിന്റെ മികച്ച പ്രകടനം ഇന്ത്യയ്ക്ക് നേട്ടമായി